മറ്റന്നാൾ മുതൽ കേരള തീരത്തുനിന്ന് കടലിൽ പോകുന്നതിന് പൂർണ നിരോധനം

ഇന്ത്യൻ ഭരണഘടനാ ശിൽപി ബാബാസാഹിബ് അംബേദ്കറിന്റെ ചരമദിനമായ മഹാ പരിനിർവാണ ദിവസം അടുത്ത മ്യൂസം ആറിന് രാജ്യം ആചരിക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെ അഭ്യർഥന കോവിഡ് സാഹചര്യം പരിഗണിച്ച് വ്ലിയതോതിൽ ജനങ്ങൾ ഒത്തു കൂടുന്നതിന് മഹാരാഷ്ട്ര ്ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറേ അടക്കമുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ അംബേദ്കറുടെ സമാധിസ്ഥലമായ അച്ചെത്യഭൂമിയിൽ ആദരമർപ്പിക്കും

പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം വിശദാംശങ്ങളുമായി ലിൻസ സിറാജ് ആരാണോ ഇന്തൃയിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾക്ക് പ്രാധാനൃം നൽകുന്നത് ആരാണോ അവരാണ് സ്വദേശി എന്ന അരബിന്ദോയുടെ ആശയത്തിന് സമാനമാണ് വോക്കൽ ഫോർ ലോക്കൽ പ്രചാരണ പരിപാടി എന്നും ശ്രീ മോദി പറഞ്ഞു

ഈ വേളയിൽ സമൂഹ ഭക്ഷണം എന്ന മാനവസേവയുടെ ആശയം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ സംസ്കാരവും ശാസ്ത്രവും എന്നും ലോകത്തെ ആകർഷിച്ചിട്ടുണ്ട്

കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി പദ്ധതിയും സാരനാഥിലെ പുരാവസ്തു ്കേന്ദ്രവും പ്രധാനമന്ത്രി സന്ദർശിക്കും

ജനോവ ബയോ ഫാർമ ബയോളജിക്കൽ ഇ ഡോക്ടർ റെഡീസ് എന്നീ മൂന്ന് സ്ഥാപനങ്ങളുമായാണ് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുക എന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് ടിറ്ററിലൂടെ അറിയിച്ചു

ആകെ രോഗബാധിതരിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ

അഖണ്ഡത സാഹോദര്യം സേവന മനോഭാവം തുടങ്ങിയവയുടെ പാത ജനങ്ങൾക്ക് മുൻപിൽ തുറന്ന ഗുരുനാനാക്ക് ദേവിന്റെ ജീവിതവും ആദർശങ്ങളും എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രചോദനമാണെന്നും അദ്ദേഹം തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കി

ചർച്ചയ്ക്കായി ഡിസംബർ മൂന്നിന് കേന്ദ്ര കൃഷിമന്ത്രി കർഷരെ ക്ഷണിച്ചിട്ടുണ്ട് കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും ആവശൃങ്ങളും സസൂക്ഷ്മം പരിശോധിക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു

വൈദ്യുതീകരിച്ച ബന്ദിക്കുയി ദിഗവാഡാ പാത രാഷ്ട്രത്തിന് സമർപ്പിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സീഷെൽസ് പ്രസിഡന്റ് വേവൽ രാംകലവനെ സന്ദർശിച്ച ഡോ ജയശങ്കർ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് അഭിനന്ദനം അറിയിച്ചു ഇന്ത്യൻ സമുദ്ര മേഖലയിലെ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും ആയുള്ള ഇന്ത്യയുടെ നയത്തെ കുറിച്ച് ഇരുനേതാക്കളും ചർച്ച ചെയ്തു

വ്യാപാരം സാമ്പത്തികം നിക്ഷേപം കോവിഡ് വെല്ലുവിളി നേരിടുന്നതിനുള്ള നടപടികൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യുമെന്ന് എന്ന് സമിതി സെക്രട്ടറി ജനറൽ വ്ളാഡിമിർ നോറോവ് പ്രസാർഭാരതി പ്രതിനിധിയോട് പറഞ്ഞു

ആർ

സുക്മ ജില്ലയിലെ വനമേഖലയിൽ സംയുക്ത സുരക്ഷാ സംഘം തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്

ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദത്തിന്റെ പ്രഭാവം കേരളത്തിലും വരാനുള്ള സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു

ആദ്യത്തേതിൽ തോൽക്കുകയും രണ്ടാം കളിയിൽ സമനില വഴങ്ങുകയും ചെയ്ത ബ്ലാസ്റ്റേഴ്സ് വിജയം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങിയത്

ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുക്കുന്നതിന് മുൻപായി അദ്ദേഹം ഭാഗ്യലക്ഷ്മി ക്ഷേത്രം സന്ദർശിച്ചു ജെ പി നദ്ദ യോഗി ആദിത്യനാഥ് തുടങ്ങിയ മുതിർന്ന ബിജെപി നേതാക്കൾ നേരത്തെ തെരഞ്ഞെടുപ്പു പ്രചാരണങ്ങളിൽ പങ്കെടുത്തിരുന്നു